രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്യാഹ്താദപൂർവ്വം ദീപാവലി ആഘോഷം

ഡെമോക്രാറ്റുകൾക്ക് വൻവിജയം പ്രസിഡന്റ് ടംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റ് നിലനിർത്തി

ശബരിമലയിൽ യുവതീപ്രവേശനം തടയണമെന്നാവശൃപ്പെട്ട് സമർപ്പിച്ച ഹർജി കേരളാഹൈക്കോടതി തള്ളി

ദീപാവലിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചരിത്ര പ്രസിദ്ധമായ കേദാർനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി ക്ഷേത്രങ്ങളിലും വീടുകളിലും ദീപങ്ങൾ തെളിയിച്ചും ലക്ഷ്മി ദേവിയെ ആരാധിച്ചുമാണ് തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ചു ഈ ദിനം ആഘോഷിക്കുന്നത് കേരളത്തിൽ ഇന്നലെയായിരുന്നു ദീപാവലി ആഘോഷങ്ങൾ അരുണാചലിലെ ഹായുലിയാംഗിൽ നിയന്ത്രണ രേഖയിലാണ് പ്രതിരോധമന്ത്രി നിർമ്മലാ സീതാരാമൻ ജവാന്മാരോടൊപ്പം ദീപാവലി ആഘോഷിച്ചത് അതിർത്തി കാക്കുന്ന ജവാന്മാർക്ക് അത്യാധുനിക ആയുധങ്ങൾ ലഭ്യമാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ജവാന്മാരെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇരുട്ടിനു മേൽ വെളിച്ചത്തിന്റെ വിജയമാണ് ദീപാവലിയെന്ന് യു എസ് സെക്രട്ടറി മൈക്ക് പോംപിയോ സന്ദേശത്തിൽ അറിയിച്ചു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക് ദീപാവലി ആശംസകൾ നേർന്നു

സുപ്രീംകോടതിയിൽ സമാന വിധി സംബന്ധിച്ച് സമർപ്പിച്ചിട്ടുള്ള ഹർജി കണക്കിലെടുത്താണ് ഹൈക്കോടതി ഹർജി തള്ളിയത് സുപ്രീംകോടതി വിധിക്കെതിരെയുള്ള ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ലെന്ന് കോടതി വൃക്തമാക്കി

പ്രളയാനന്തര പ്രവർത്തനങ്ങളും നവകേരള സൃഷ്ടിയും എന്ന വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറുമാർക്കും സെക്രട്ടറി മാർക്കുമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

അന്വേഷണം ആവശൃപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്തിനുളള മറുപടിയിലാണ് ഗവർണർ ഇക്കാരൃം വൃക്തമാക്കിയത് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഗവർണർക്ക് മൂന്ന് തവണ കത്ത് നൽകിയിരുന്നു

ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകിയ നടപടി റദ്ദാക്കിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വേണ്ടെന്ന് ഗവർണർ പ്രതിപക്ഷനേതാവിനെ അറിയിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്

അതിനിടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ഷൻ കമ്മീഷന്റെ മൂന്നംഗസംഘം മിസോറാമിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവരുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി പ്രിൻസിപ്പൽ സെക്രട്ടറി ലാൽനുൻ ആഭ്യന്തര മാവിയ ചുവാങ്ഗോയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയ മിസോറാം ചീഫ് ഇലക്ഷൻ ഓഫീസർ എസ് ബി ശശാങ്കിന്റെ നടപടിക്കെതിരെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും സന്നദ്ധ സംഘടനകളും പ്രതിഷേധനവുമായി രംഗത്തെതിയ സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ജെയിനിനെ സുദീപ് തുടർചർച്ചകൾക്കായി നിയോഗിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

ഛത്തീസ്ഗഡ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ത്രീ സൌഹൃദ ബൂത്തുകൾ സജ്ജീകൃത്ക്കും

രാജസ്ഥാനിലും തെലങ്കാനയിലും ഒറ്റഘട്ടമായി ഡിസംബർ ഏഴിനാണ് വോട്ടെടുപ്പ്

ത്റമുഖത്തെ അഫ്ഗാനിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാതയ്ക്കും ഉപരോധത്തിൽ ഇളവു നല്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചു ഇറാനെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഇതാദ്യമായാണ് ഒരു രാജ്യത്തിന് വികസന പ്രവർത്തനങ്ങളുടെ മികവ് പരിഗണിച്ച് ഇളവ് നല്കാൻ അമേരിക്ക തീരുമാനിച്ചത് യുദ്ധത്തിൽ തകർന്ന അഫ്ഗാനിസ്ഥാന്റെ പുനരധിവാസ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഛബഹാർ തുറമുഖ വികസനം നിർണ്ണായകമാക്കുമെന്ന് ട്രംപ് ഭരണകൂടം വിലയിരുത്തി

എസ് ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധി സഭയായ കോൺഗ്രസ്സിൽ പ്രതിപക്ഷ കക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വിജയം എന്നാൽ സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ആധിപത്യം നിലനിർത്തി

കഴിഞ്ഞ എട്ടു വർഷത്തിനിടെ ഇതാദ്യമായാണ് ജനപ്രതിനിധി സഭയിൽ ഡെമോക്രാറ്റുകൾക്ക് നിർണ്ണായക വീജയം നേടാനാകുന്നത്

പുതിയ സഭ അടുത്തവർഷം ജനുവരിയിൽ നിലവിൽ വരും